ഇന്ത്യൻ മെഡിക്കൽ ഗവേഷ്ട്രണ് ക്ൌൺസിലിന്റെ മൂന്ന് വൻകിട കോവിഡ് പരിശ്ശോധിന്റാ ലാബുകൾ മറ്റുന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദ്രി ഉദ്ഘാടനം ചെയ്യും

സ്വകാരൃ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്കുകൾ ഏകീകരിച്ചു

ലോകത്തില്ലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്ക് ഇന്ത്യയിൽ വാക്സിൻ പരീക്ഷണങ്ങളിൽ പ്രതീക്ഷയോടെ ലോക്കം വിശദാംശങ്ങളുമായി സ്ുരേഷ്

ഇതാദ്യമായാണ് രാജ്യത്തെ കോവിഡ് പരിശോധനകളുടെ എണ്ണം ഇത്രയും വർധിക്കുന്നത്

നോയിഡ കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിലെ ലാബുകൾ വൈകുന്നേരം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

കൊറോണ വൈറസ് പ്രതിസന്ധിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ഐ സി എം ആർ പരിശോധനാ ശേഷികൾ വർദ്ധിപ്പിക്കുകയാണ്

എല്ലായിടത്തും ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ വിനൃസിച്ചിട്ടുണ്ട് ജബൽപൂർ ഗ്വാളിയോർ ദാമോ തുടങ്ങിയ ജില്ലകളിൽ രണ്ട് ദിവസത്തെ ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ചു സ്വയം നിരീക്ഷണത്തിൽ കഴിയുമെന്നും സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ചികിത്സ തേടുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ലോക്ക് ഡൌൺ കാലയളവിൽ അവശ്യപ്സേവനങ്ങൾ മാത്രമേ അനുവദിക്കൂ

നേരത്തെ ഇത് കോവിഡ് ഭേദമായി ആശുപത്രി വിടുന്ന എല്ലാവർക്കും നൽകുമായിരുന്നു

എ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര രാസവസ്തു രാസവള മന്ത്രി ഡി

വള ഉത്പാദന പ്രവർത്തനങ്ങളെ ആത്മനിർഭർ ആശയം ഉൾക്കൊണ്ട് നവീകരിക്കാനും അതുവഴി കർഷക സമൂഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും സർക്കാർ ലക്ഷ്യമിടുന്നു വിവിധ വളങ്ങളുടെ വിതരണം ലഭ്യത ആവശ്യം എന്നിവ സംബന്ധിച്ച കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ രാസവള മന്ത്രാലയത്തിന്റെ വെബ് സൈറ്റിൽ ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു രാജ്യത്തെ വളവിതരണ ശൃംഖല ലളിതവൽക്കരിക്കാനും നടപടി സ്വീകരിച്ചതായും മന്ത്രി വ്യക്തിമാക്കി

രൺബീർഗഡിലാണ് സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്

ഈ സമൃത്ര് ഒളിച്ചിരുന്ന് തീവ്രവാദികൾ സേനാംഗങ്ങൾക്കു നേരെ വ്വെടിയ്ടുതിർത്തു

ക്കൊല്ല്പ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പ്പോലീസ് അറിയിച്ചു

ഗ്രാമ പഞ്ചായത്തുകൾക്ക് നീക്കിവയ്ക്കുന്ന ഫണ്ടുകൾ ഗ്രാമീണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പാക്കുന്നതിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ കേന്ദ്രം ശ്രദ്ധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മെച്ചപ്പെട്ട വേതനം തൊഴിൽ എന്നിവയിലൂടെ ഉപജീവനത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഗ്രാമീണ മേഖലയിൽ പാർപ്പിടങ്ങൾ റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേന്ദ്ര ഗ്രാമീണ മന്ത്രാലയം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

അതേ സമയം ആറ് പ്രദേശങ്ങളെ ഹോട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്

കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ സംവിധാനത്തിൽ നിന്നും റഫർ ചെയ്യുന്ന സ്ഥകാര്യ ആശുപത്രികളിലുമാണ് ചികിത്സാ നിരക്ക് നിശ്ചയിച്ചത്

എല്ലാ ജില്ലകളിലെയും കാർട്ടൂൺ മതിൽ പ്രചാരണത്തിന്റെ തുടർച്ചയായാണ് കോവിഡ് ലൈൻസ് പരിപാടി

ജയരാജൻ

നാളെ അർദ്ധ്രൃത്തി വരെയുള്ള സമയത്ത് പൊഴിയൂർ മുതൽ കാസർഗോഡ് വ്രെയുള്ള കേരള തീരത്ത് ഉയരത്തിൽ തിരമാലക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു